സി ഇന്ന് ഐസ്വാൾ എഫ് സിയെ നേരിടും ൾട്ട്ട്ട്ട്ട്ട്ട പൌരത്വ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നാക്കം പോകുന്ന പ്രശ്നമില്ലെന്ന് ആഭ്യന്തര മന്ത്രി അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കി നിയമഭേദഗതി ഒരാ ളുടെയും പൌരത്വം എടുത്തുകളയാനല്ലെന്നും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ നിയമത്തെക്കുറിച്ച് ആശയ ക്കുഴപ്പം പ്രചരിപ്പിക്കുകയാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു രാജസ്ഥാനിലെ ജോധ്പൂരിൽ പൌരത്വ നിയമ ഭേദ ഗതിയെക്കുറിച്ച് പൊതുജന ബോധവത്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു ആഭ്യന്തര മന്ത്രി

ചില ബി

പി മുഖ്യമന്ത്രി മാർപോലും ഇതിനെ എതിർക്കുകയാണെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജെവാല പറഞ്ഞു ഗവൺമെന്റ് പിന്തിരിഞ്ഞ് നോക്കണമെന്നും പ്രതിപ ക്ഷത്തെ പഴിചാരുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ടിറ്ററിൽ ആവ ശ്യപ്പെട്ടു രംഭട്ട്ടിട്ടുള പൌരത്വ നിയമ ഭേദഗതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ഭരണഘടനക്ക് വിധേയമായാണെന്ന് സ്പീക്കർ പി ശ്രീരാമ കൃഷ്ണൻ പറഞ്ഞു പ്രമേയത്തിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത ഗവർണ റുടെ നിലപാട് നിർഭാഗ്യകരമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു നിയമസഭയ്ക്ക് പ്രമേയം പാസ്സാക്കാൻ അധികാ രമില്ലെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും ഭരണഘടനാ പരിധി നിയമസഭ ലംഘി ച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് നടക്കുന്നത് വ്യാജപ്രചരണങ്ങളാ ണെന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യത്തിനൊപ്പം നിൽക്കണമെന്നും ബി

പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം വേലായുധൻ പറഞ്ഞു ദേശീയ പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവത്ക്കരിക്കു ന്നതിനായി ബി

പി സംഘടിപ്പിക്കുന്ന സമ്പർക്കയജ്ഞത്തിന്റെ കോഴി ക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ദർവ്വെടു പൌരത്വ നിയമഭേദഗതിക്കെതിരെ പൌരാവലിയുടെ നേതൃത്വത്തിൽ കോ ഴിക്കോട്ട് റാലി നടത്തി ഡോക്ടർ എം

എസ് നാരായണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു മുതലക്കുളത്ത് നടന്ന സമാപന പരിപാടിയിൽ മേയർ തോ ട്ടത്തിൽ രവീന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രുട്ടിട്ട്ട്ട്ട്ട്ട്ട ഭൂപരിഷ്കരണ നിയമത്തിന്റെ അമ്പതാം വാർഷിക സമ്മേളനത്തിൽ ചി ലരുടെ പേര് എടുത്ത് പറയാതിരുന്നത് തന്റെ ഔചിതൃബോധം കൊണ്ടാ ണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വൃക്തമാക്കി കണ്ണൂരിൽ അഖിലേ ന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ദേശീയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഭൂപരിഷ്കരണ നിയമത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മുൻ മുഖ്യമ ന്ത്രി സി അച്യുതമേനോനെക്കുറിച്ച് പരാമർശിച്ചില്ലെന്ന സി

ഐയുടെ വി മർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

അഖിലേന്ത്യ കർഷ ക തൊഴിലാളി യൂണിയൻ ദേശീയ പ്രസിഡന്റായി എ വിജയരാഘവനെ യും ജനറൽ സെക്രട്ടറിയായി ബി വെങ്കട്ടിനെയും സമ്മേളനം തിരഞ്ഞെടു ത്തു കർഷക ക്ഷേമ പെൻഷൻ മൂവായിരം രൂപയാക്കണമെന്നും ഇതിനാ യി സംസ്ഥാനത്തോടൊപ്പം കേന്ദ്ര വിഹിതം കൂടി ലഭ്യമാക്കണമെന്നും സമ്മേ ളനം ആവശ്യപ്പെട്ടു

സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വ്വീട് നൽകുക മാത്ര മല്ല അവരുടെ തുടർ ജീവിതത്തിന് സാമൂഹ്യപ്രവും തൊഴിൽപരവുമായ സഹായം നൽകി മുഖ്യധാരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗവൺമെന്റ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് അദാലത്തും കുടുംബസംഗമ ങ്ങളും സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ലൈഫ് പദ്ധ തിയിലൂടെ രണ്ടുലക്ഷം ഭവനങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന്റെ പ്രഖ്യാപനം ഈമാസം അവസാനം മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് മന്ത്രി വൃക്തമാക്കി രദ്ദേഷ്ടങ സംസ്ഥാനത്ത് ആയിരം പ്രാഥമികാരോഗൃകേന്ദ്രങ്ങൾ ഈവർഷം കു ടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മറ്റുമെന്നും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററു കളുടെ നിലവാരം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വടകര തിരുവള്ളൂർ സി എച്ച് സിയിൽ ഈവനിംഗ് ഒ പി സംവിധാനം ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആർദ്രം മിഷന്റെ രണ്ടാംഘട്ടത്തിൽ ഒ പി സംവിധാനം വൈകുന്നേരം വരെയാക്കുമെന്നും മന്ത്രി പറഞ്ഞു ദർവ്വെട്ടറ കേരളം വികസന മുന്നേറ്റത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു കൊ ണ്ടിരിക്കുകയാണെന്ന് മന്ത്രി എ

ഹരിത കേരള മിഷ ന്റെ നേതൃത്വത്തിൽ നീർച്ചാലുകളുടെ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് നടപ്പാ ക്കുന്ന ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല സമാപ നത്തോടനുബന്ധിച്ച് കുന്നുമ്മൽ ഗ്രാമപഞ്ചായത്തിലെ മീൻമുട്ടി പാതിരിപ്പറ്റ തോടിന്റെ ജനകീയ ശുചീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

സംസ്ഥാനത്ത് സമ്മേളനങ്ങളും സെമിനാറുകളും സംഘടിപ്പിക്കും ഈ രണ്ടാഴ്ചക്കാലം ബ്രെയിൽ ഡെമോൺസ്ട്രേഷൻ കാഴ്ച പരിമിതർക്കുവേണ്ടി കായിക കലാ മത്സരങ്ങൾ സംഘടിപ്പിക്കും വിവിധ ക്ഷേമ പദ്ധതികളും നടപ്പിലാക്കും

സി ഇന്ന് രണ്ടാമത്തെ ഹോംമത്സരത്തിൽ ഐസ്വാൾ എഫ് സിയെ നേരിടും

മൂന്ന് കളികളിലായി രണ്ട് ജയവും ഒരു തോൽവിയുമായി ആറ് പോയിന്റാണ് ഗോകുലത്തിനു ള്ളത്

എൽ ഫുട്ബോളിൽ ഗോവ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബംഗളുരൂ എഫ് സി തോൽപ്പിച്ചു ശ്രീക ണ്ഠീരവ സ്റ്റേഡിയത്തിൽ നായകൻ സുനിൽഛേത്രിയുടെ ഇരട്ട ഗോളിന്റെ മികവിലാണ് ബംഗളുരുവിന്റെ വിജയം

ഇന്ന് മുംബൈ സിറ്റി എ ടി കെ കൊൽക്കത്തയെ നേരിടും

പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ അസമിലെ പ്രക്ഷോഭങ്ങൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഹൈദരാബാദിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഹൈദരാബാദിനെതിരെ കേരളത്തിന് ബാറ്റിംഗ് തകർച്ച

രദേഷ്ടെടു കർണാടകയിലെ മൂഡബിദ്രിയിൽ അഖിലേന്ത്യാ അന്തർ സർവകലാ ശാലാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ കേരളം രണ്ട് വെങ്കലം നേടി പുരുഷ വിഭാഗം നൂറുമീറ്ററിൽ കോതമംഗലം എം

ആർ അലീഷയുമാണ് വെങ്കലം നേടിയത്

ഗവർണർ ആരിഫ് മുഹ മ്മദ്ഖാൻ ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് കൃഷിവകുപ്പിന്റെ ജീവനി പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങ ളിൽ സെമിനാറുകളും വർക്ക്ഷോപ്പുകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പി ക്കുന്നുണ്ട്

ദർവ്വട്ടെഴ പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ മോഡൽ റസിഡൻഷ്യൽ സ് കൂളുകളിലും പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും പഠിക്കുന്ന കുട്ടികളുടെ സം സ്ഥാനതല കലാമേളയായ സർഗോത്സവത്തിന് കോഴിക്കോട്ട് ഇന്ന് തുടക്ക മാകും

പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് പ്രസിദ്ധയായ ഓസ്ട്രേലിയൻ വനിത സാൻഡി റോബ്സൻ യാത്രയ്ക്ക് നേതൃത്വം നൽകും ദർവ്വെട്ടറ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ലോക ഭാരതീയരുടെ ഇന്റർ നാഷണൽ റിയാലിറ്റി ഷോ നൃത്ത മത്സരത്തിൽ കണ്ണൂർ പാപ്പിനിശ്ശേരി സ്വ ദേശി അദൈത് സുജയ് ഇരട്ട ബഹുമതി നേടി

ഫൈനലിൽ അമേരിക്കയിലെ ഇന്ത്യൻ ഐക്കണായും ഗ്രാന്റ് ഫിനാലെയിൽ ഇൻറർനാഷണൽ ഇന്ത്യൻ ഐക്കണായും ആണ് അദ്വൈത് തിരഞ്ഞെടുക്കപ്പെട്ടത് രദ്ദേഷ്ടങ ഇന്ത്യൻ ബറ്റാലിയൻ തണ്ടർ ബോൾട്ട് സേനയുടെ ഏഴാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം മലപ്പുറം പാണ്ടിക്കാട് കൊള പ്പറമ്പ് പൊലീസ് ക്യാമ്പിൽ നടക്കും പരേഡിൽ മുഖ്യമന്ത്രി പിണറായി വിജ യൻ പുതുതായി സേനയുടെ ഭാഗമാവുന്ന അംഗങ്ങളുടെ അഭിവാദ്യം സ്വീക രിക്കും രുട്ടിട്ട്ട്ട്ട്ട്ട്ട ട കണ്ണൂരിൽ പുതുതായി നിർമ്മിച്ച പൊലീസ് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാ ടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ നിർവഹിക്കും രുട്ട്ട്ട്ട്ട്ട്ട തിരുവനന്തപുരം ഗാന്ധിപുരത്ത് അമ്മയേയും കുഞ്ഞിനെയും വാഹന മിടിച്ച ശേഷം ആശുപത്രിയിൽ എത്തിക്കാതെ വഴിയിൽ ഇറക്കി വിട്ട സംഭ വത്തിൽ കർശന നടപടി സ്വീകരിക്കുവാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി വാഹന അപകടത്തിൽപ്പെട്ട അമ്മയെയും പിഞ്ചു കുഞ്ഞി നെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം വഴിയിൽ ഇറക്കിവിട്ട സംഭവം അങ്ങേയറ്റം മനുഷ്യത്ഥവിരുദ്ധമാണെന്ന് ഇവരുടെ വീട്ട് സന്ദർശിച്ച ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു രദ്ദേഷ്ടങ പുരാവസ്തു വകുപ്പിന് കീഴിൽ കണ്ണൂർ ചെമ്പന്തൊട്ടിയിലെ ബിഷപ്പ് വ ള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയിനിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർദേശം നൽകി നിർമ്മാ ണത്തിലെ പുരോഗതി വിലയിരുത്താൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്

ദർവ്വെട്ടറ പച്ചക്കറി ഉത്പാദനത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കണമെങ്കിൽ കൂട്ടായ പ്രയത്നം അനിവാര്യമാണെന്ന് ഹോർട്ടി കോർപ്പ് ചെയർമാൻ ടി

തൊടുപുഴയിൽ ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷിക മേളയോടനുബന്ധിച്ച് കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ

അൻപതിനായിരത്തിലധികം പൂച്ചെടികളാണ് ഇത്ത വണ പ്രദർശിപ്പിക്കുന്നത്

പാർട്ടി സംസ്ഥാന അധ്യക്ഷ സി കെ ജാനു അധ്യ ക്ഷയായിരുന്നു

ചവറ കരുനാഗപ്പള്ളി പുതിയകാവ് എന്നിവിടങ്ങളിലെ മൊത്തവിതരണ കേന്ദ്രങ്ങ ളിലായിരുന്നു പരിശോധന രദേഷ്ടെടു കണ്ണൂർ തളിപ്പറമ്പിൽ കാറിൽ കടത്തുകയായിരുന്ന ആറ് കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി കണ്ണൂർ ജില്ലയുടെ പ്ല ഭാഗങ്ങളിൽ കഞ്ചാവ് മൊത്തവിതരണക്കാരായ തിരൂർ സ്വദേശി ഖമറുദ്ദീൻ ചുഴലി സ്വദേശി ജാഫർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു

എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവര ത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം പിടികൂടിയത്